പശ്ചിമബംഗാൾ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ പോളിംഗ് മന്ദഗതിയിലാണ് പശ്ചിമബംഗാളിലെ എട്ടും മധ്യപ്രദേശിലെയും ഒഡീഷ യിലെയും ആറു വീതവും ബിഹാറിലെ അഞ്ചും ഝാർഖ ണ്ഡിലെ മൂന്നും മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് ജമ്മു കശ്മീരിലെ അനന്തനാഗ് ലോക്സഭാ മണ്ഡല ത്തിലെ നാല് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ വോട്ടെ ടുപ്പ് സുരക്ഷാകാരണങ്ങളാൽ മണ്ഡലത്തിൽ മൂന്നു ഘട്ട ങ്ങളിലായാണ് വോട്ടെടുപ്പ് പൂർത്തിയാക്കുന്നത് മഹാരാഷ്ട്രയിലെയും ഒഡീഷയിലെയും വോട്ടെടുപ്പ് ഇന്ന ത്തോടെ പൂർത്തിയാകും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ആദ്യഘട്ട വോട്ടെടുപ്പാണ് നടക്കുന്നത്

കമ്മീഷന് നൽകാൻ നട പടി ആരം ഭിച്ച തായി മുഖ്യ തെര ഓഫീസർ ടിക്കാറാം മീണ തിരുവനന്തപുരത്ത് അറിയിച്ചു കണ്ണൂരിൽ നിന്ന് പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചിട്ടു ണ്ട്

ഇത്തരം വാർത്തകളെ കമ്മീഷൻ ഗൌരവത്തോ ടെയാണ് കാണുന്നതെന്നും കുറ്റം തെളിഞ്ഞാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്നും ടിക്കാറാം മീണ വൃക്തമാക്കി

യു ഡി എഫ് കാസർകോട് ജില്ലാനേതാക്കൾ വരണാധികാരിയായ ജില്ലാ കലക്ടറെ കണ്ട് ഈ ആവശ്യം ഉന്നയിച്ചു കണ്ണൂർ പിലാ ത്തറയിലടക്കം സ്ഥലങ്ങളിലെ ബൂത്തുകളിൽ കള്ളവോട്ടു നടന്നുവെന്ന വീഡിയോ ദൃശൃങ്ങൾ പുറത്തുവന്ന സാഹച ര്യത്തിലാണ് ഈ ആവശ്യം

ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ കള്ളവോ ട്ടുകൾ നടന്നെന്നു വൃക്തമായതായി ബി ജെ പി സംസ്ഥാന പ്രസിഡണ്ട് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു ഈ സാഹ ചര്യത്തിൽ ജനാധിപത്യ വിരുദ്ധമായ പാർട്ടി ഗ്രാമങ്ങളെ തള്ളിപ്പറയാൻ സി പി ഐ എം തയ്യാറാവണമെന്നും ശ്രീധ രൻപിള്ള തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു കള്ളവോട്ട് വിഷയത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റും തെര കമ്മീഷനും തയ്യാറാകണമെന്നും ആദ്യ മായാണ് കള്ളവോട്ട് വിഷയത്തിൽ ഇത്ര വൃക്തമായ തെളി വുകൾ ലഭിക്കുന്നതെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു

ദൃശ്യങ്ങളുടെ ആധികാരികത പരിശോധിക്കാനായി ശാസ്ത്രീയ പരിശോധനക്ക് അയക്കും

പാർട്ടി സംസ്ഥാന പ്രസിഡണ്ട് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിലാണ് യോഗം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്താനാണ് പ്രധാന മായും യോഗം ചേരുന്നത്

നാളെ രാവിലെയോടെ ചുഴലിക്കാറ്റ് അതിതീവ്രമായി മാറും

ഇതേ തുടർന്ന് കേരളത്തിൽ ഇന്നും നാളെയും കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീ ക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകി

കട്ടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ തീര ദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പുനൽകി

ആഴ ക്കടലിൽ മത്സൃബന്ധനത്തിലേർപ്പെട്ടിരിക്കുന്നവർ തീരത്ത് തിരിച്ചെത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് പാലക്കാ ട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെ എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ടായിരിക്കും

ചുഴലിക്കാറ്റ് ബാധിതമായേക്കാവുന്ന സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റുമായി ചേർന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹം ഉദ്യോ ഗസ്ഥരോട് ട്വിറ്ററിൽ ആവശ്യപ്പെട്ടു

വാഹന പരിശോധനയുടെയും പിഴയടപ്പിക്കലിന്റെയും പേരിലാണ് സമരം സർവീസുകൾ നിർത്തിയതോടെ യാത്രക്കാർ ദുരി തത്തിലായി അന്തർസംസ്ഥാന ബസ്സുകൾ പണി മുടക്കിയ സാഹച ര്യത്തിൽ കെ എസ് ആർ ടി സി കൂടുതൽ സർവീസ് നട ത്തുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു പണിമുടക്ക് നോട്ടീസ് നൽകാതെയാണെന്നും ജീവനക്കാർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നും മന്ത്രി പറഞ്ഞു

സേലത്തെ കോളേജിൽ പഠിക്കുന്ന ഇരുവർക്കും കോളജിൽ തിരിച്ചെത്തിയാൽ വധിക്കുമെന്ന് മൊബൈലിൽ ഭീഷണികോളുകൾ ലഭിച്ചതായി വിദ്യാർത്ഥി കൾ മാധ്യമങ്ങളോട് പറഞ്ഞു

സേഫ് കേരള തൃശ്ശൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാലിയേക്കർ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന

ശ്രീലങ്കലൻ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കേരള ത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തവർക്ക് സ്ഫോടനവുമായി നേരിട്ട് ബന്ധമില്ലെന്ന് ദേശീയ അന്വേഷണ ഏജൻസി വൃക്ത മാക്കി ഇസ്ലാമിക് സ്റ്റേറ്റിനോട്ട് അനുഭാവും പുലർത്തുന്നവ രെയാണ് കസ്റ്റഡിയിലെടുത്തിരുന്നത് സ്ഫോടനവുമായി ബന്ധപ്പെട്ടവർ കേരളത്തിലെത്തിയിട്ടുണ്ടായിരുന്നോ എന്ന കാര്യവും അന്വേഷിക്കും

ബി ജെ പി നേതാവ് മീനാക്ഷി ലേഖി നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് രാഹുൽ രണ്ടാ മതും മറുപടി നൽകിയത് റഫാൽ കേസിൽ സുപ്രീംകോ ടതി പരാമർശത്തെ തുടർന്ന് ചൌകിദാർ കള്ളനാണെന്ന് കോടതി അഭിപ്രായപ്പെട്ടതായി നടത്തിയ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലാണ് മീനാക്ഷി ലേഖി രാഹുലിനെതിരെ കോടതിയലക്ഷ്യ ഹർജി നൽകിയത്

അതിനിടെ ഡൽഹി വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ സെർവറിൽ ഇന്നു പുലർച്ചെ തകരാറുണ്ടായി

ഈ മാസം മുതൽ ഡി എ വിതരണം ചെയ്തു തുടങ്ങുമെന്ന് ഗവണ്മെന്റ് പറഞ്ഞിട്ടില്ല അധിക ഡി എ പണമായി തന്നെ മാസ ശമ്പളത്തോടൊപ്പം നൽകുമെന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു

ചോദ്യം ചെയ്യേണ്ട പത്ത് വിമത വൈദിക രുടെ പട്ടിക പൂർത്തിയായതായി പൊലീസ് അറിയിച്ചു സിവിൽ സർവീസിലുള്ളവരും പുതുതായി സർവീസിൽ എത്തിയവരും മാതൃകയാക്കേണ്ട ജീവിതമാണ് ഡോക്ടർ ഡി ബാബുപോളിന്റേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറ ഞ്ഞു നാടിന്റെയും ജനങ്ങളുടെയും നന്മയ്ക്കായി ജീവിതം ഉഴിഞ്ഞുവെച്ച വൃക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റേതെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു തിരുവനന്തപുരത്ത് ബാബു പോൾ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു മുഖ്യമന്ത്രി

ഇതുമായി ബന്ധ പ്പെട്ട് യാത്രക്കാരനായ മുജീബ് റഹ്മാനെ എന്നയാളെ കസ്റ്റ ഡിയിലെടുത്തു ബാഗിനകത്ത് ക്രീം രൂപത്തിലായിരുന്നു മയക്കുമരുന്ന് ഒളിപ്പിച്ചിരുന്നത്

ഇരി വേരി സ്വദേശികളായ അബ്ദുൾസലാം മുഹമ്മദ് ഷക്കീൽ എന്നിവരാണ് പിടിയിലായത് വീട്ടമ്മയെ ഫോണിൽ വിളിച്ചു എന്നാരോപിച്ചായിരുന്നു മർദ്ദനം മർദ്ദന ദൃശ്യങ്ങളിൽ തിരി ച്ചുറിഞ്ഞ രണ്ട് പേരാണ് അറസ്റ്റിലായത്

ഹൈദരാബാദിൽ രാത്രി എട്ടിനാണ് മത്സരം

പൂരം പ്രദർശനവും ഒരുക്കങ്ങളും നേരത്തെ തുട ങ്ങിയിരുന്നു